ചെയ്യുന്നവർക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ക്രിമിനൽ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി

ഒറ്റക്കക്ഷിയായ പി ടി ഐ അധൃക്ഷൻ ഇമ്രാൻഖാനെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭിനന്ദിച്ചു

രണ്ട് മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കണം അപ്പീലുകൾ വന്നാൽ ആറുമാസത്തിനുള്ളിൽ തീർപ്പാക്കണം പ്രതികൾക്ക് മുൻകൂർജാമ്യം അനുവദിക്കരുതെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്

പ്രതികൾക്ക് ശിക്ഷ ഉറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ബില്ലിന്റെ ചർച്ചയിൽ സംബന്ധിച്ച് ആഭ്യന്തരസഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു

വനിതാ ജഡ്ജിയുടെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സേവനം ഇത്തരം കേസുകളിൽ ഉറപ്പാക്കും അന്വേഷണ മികവിനായി ഫോറൻസിക് ലാബ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുന്നതിനും സ്ത്രീസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബ്ദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

ആൾക്കൂട്ട കൊലപാതകം പ്രാകൃതമായ നടപടിയാണെന്നും ഇക്കാര്യം അംഗീകരിക്കാനാവില്ലെന്നും മഹാരാഷ്ട്രയിലെ യവത് മാളിൽ നാദ്ജോഗി സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തവെ ആഹിർ പറഞ്ഞു പരിഷ്കൃത സമൂഹത്തിന് ഇത്തരം പ്രാകൃത നടപടികളെ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

രാജ്യരക്ഷാമന്ത്രി നിർമ്മലാസീതാരാമന്റെ അദ്ധ്യക്ഷതയിലാണ് ന്യൂഡൽഹിയിൽ കൌൺസിൽ ചേർന്നത് സായുധ സേനയ്ക്ക് സമയബന്ധിതമായി ആയുധങ്ങൾ ലഭ്യമാക്കുവാനാണ് മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തിയത് പ്രതിരോധ മേഖലയ്ക്ക് ഭാവിയിലേക്ക് കൂടി ആവശ്യമായി ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും സ്ഥകാര്യ മേഖലയുമായും സഹകരിക്കാനും തീരുമാനിച്ചിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ ആയുധ്യ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത നേടുകയാണ് ലക്ഷ്യമെന്നു രാജ്യ രക്ഷാമന്ത്രാലയം അറിയിച്ചു നാവിക ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾക്കും കൌൺസിൽ അംഗീകാരം നലകി

ജെ

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ കൂടാതെ മുതിർന്ന പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും യോഗത്തിന് പ്രത്യേക അജണ്ട നിശ്ചയിച്ചിട്ടില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ലോക്സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തിയ ശേഷം ഇതാദ്യമായാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ അഭിനന്ദിച്ച് പാർലമെന്ററി പാർട്ടി യോഗം പ്രമേയം പാസ്സാക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചനയുണ്ട്

ദേശീയ പൌരത്വ രജിസ്റ്റർ ഒരു മതത്തിന്റേയും അടിസ്ഥാനത്തിലല്ല തയ്യാറാക്കിയിട്ടുള്ളതെന്നും ഇന്ത്യാക്കരെയും അല്ലാത്തവരെയും തിരിച്ചറിയാനുള്ള രേഖ മാത്രമാണെന്നും പാർട്ടി വക്താവ് സെയ്ദ് മാമിനോ അവോയി ആകാശവാണിയോട് പ്യറ്റഞ്ഞു

ജെ

യുടെ രാഷ്ട്രട്ടീയ ്രധുവീകരണ നീക്കമാണെന്ന കോൺഗ്രസ് ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അതിനിടെ ദേശീയ പൌരത്യ ർജീസ്റ്ററിനെതിരെയുള്ള യാതൊരു വിധ ഗൂഢാലോചനയും അനുപ്പ്ദിക്കില്ലെന്ന് അസം ഗണ പരിഷത് നേതാവ് പവൻദാസ് വൃക്തമാക്കി ഏതെങ്കിലും ഇന്ത്യൻ പൌരന്റെ പേര് വിട്ടുപോയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ യഥാർത്ഥ രേഖകൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ആഭ്യന്തര ഉത്പന്നങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യംവെച്ച് രണ്ട് വർഷത്തേക്കാണ് കരുതൽ തീരുവ ഏർപ്പെടുത്തിയത്

ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ജനാധിപത്യത്തിന്റെ വേരുകൾ ഉറയ്ക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നരേന്ദ്രമോദി പറഞ്ഞു അയൽരാജ്യത്തെ സമാധാനവും വികസനവുമാണ് തന്റെ ദർശനവുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി

എന്നാൽ ജനങ്ങളെ മുൻകൂട്ടി അറിയിച്ചശേഷം പകൽമാത്രമേ ഡാമിന്റെ ഷട്ടർ തുറക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി

എന്നാൽ ഇതിനർത്ഥം ഏതു നിമിഷവും ഷട്ടർ തുറക്കുമെന്നല്ല മൂന്നാംഘട്ടമായി റെഡ് അലർട്ട് നൽകി ജനങ്ങളെ മുൻകൂട്ടി അറിയിച്ചശേഷം പകൽ സമയത്തേ ഡാമിന്റെ ഷട്ടർ തുറക്കുകയുള്ളൂ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഉള്ളവർ ദുരന്തനിവാരണ അഥോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഗൌരവമായി പാലിക്കേണ്ടതാണെന്ന് അധികൃതർ നിർദ്ദേശം നൽകുന്നു അതേസമയം ഇടുക്കി ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതു സംബന്ധിച്ച് ജില്ല ഭരണകൂടം അവലോകനം ചെയ്തു

ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘവും കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലും ഒരുക്കങ്ങൾ നടക്കുകയാണ് ഡാം തുറക്കുന്ന സമയത്ത് നദിയിലെ ചപ്പാത്തുകളിലൂടെ ഗതാഗതം നിരോധിക്കും ഇതിനിടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇരുകരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതിർ അറിയിച്ചു

സംസ്ഥാനത്തെ പ്രമുഖ മൽസ്യബന്ധന കേന്ദ്രമായ കൊല്ലം നീണ്ടകരയിലെ പാലത്തിന്റെ തൂണുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങല അഴിച്ചുമാറ്റി ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതായി അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും

ജെ

സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻ പിള്ളയ്ക്ക് ഇന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകും

ഇത് രണ്ടാംവട്ടമാണ് ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനാകുന്നത്

സംസ്ഥാന ഉപാധ്യക്ഷൻ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട് നിലവിൽ ദേശീയ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗമാണ്

ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് ്തെരഞ്ഞെടുത്തെങ്കിലും ഇന്ത്യയുടെ മുൻനിര ബൌളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല

ഇന്ത്യൻ താരങ്ങളായ എച്ച്

പ്രണോയ് സമീർ വർമ്മ സായി പ്രണീത് എന്നിവർ രണ്ടാം റൌണ്ടിലേക്ക് കടന്നു